ഒരു ലക്ഷം കോടി കടന്നതായി കേന്ദ്രം

നിർത്തിവയ്ക്കണമെന്നു് ഉ്ന്നതാധികാര സമിതി റിപ്പോർട്ട്

തീപിടുത്തം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഗവൺമെന്റ്

ക്കുമെന്ന് മന്ത്രി കെ

മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മിന്നുന്ന ജയം വിൻഡീസിനെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി

രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനം വീണ്ടും ലക്ഷം കോടി കടന്നു കഴിഞ്ഞമാസം ജി

ഇനത്തിൽ പിരിച്ചത് ഒരു ലക്ഷം കോടി കവിഞ്ഞതായി കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു രാജ്യത്തെ ഉത്പാദന മേഖലയിലുണ്ടായ മുന്നേറ്റമാണ് നികുതി വരുമാനത്തിൽ പ്രതിഫലിച്ചത്

ഇതിന്റെ ഭാഗിമായി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ്തിരൂപ്പന്തപുരത്ത് സംഘടിപ്പിച്ച ജീവനോപാധി വികസന കോൺഫറ്റ്ൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

നാണ്യവിളകൾക്ക് ഉണ്ടായ നാശനഷ്ടത്തിന്റെ ആഘാതം ദീർഘകാലം കർഷകർ അനുഭവിക്കേണ്ടിവരും

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരന്തങ്ങളെ വിജയകരമായി അഭിമുഖീകരിച്ച മാതൃകകൾ നമ്മുടെ സംസ്ഥാനത്തും പ്രാവർത്തികമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആറു ജില്ലകൾക്കു വേണ്ട പ്രത്യേക പാക്കേജുകൾ വികസിപ്പിക്കാൻ വായ്പാ പദ്ധതികൾ രൂപീകരിക്കുമെന്ന് ആസൂത്രണബോർഡ് ഉപാധ്യക്ഷൻ ഡോ

വകുപ്പ് ഉദ്യോഗസ്ഥർ ബാങ്ക് ഉദ്യോഗസ്ഥർ ജില്ലാ പ്രതിനിധികൾ എന്നിവരുമായി വിശദമമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

സമൂഹം ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് രൂപീകരണദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം എസ്

പി ഗ്രൌണ്ടിൽ നടന്ന റൈസിംഗ് ഡേ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ വീണ്ടും പഴയകാലത്തേക്ക് തിരിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ശക്തമാണ് പോലീസ് സേനയിലും ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോലീസിനെ നിർവീര്യമാക്കാനുദ്ദേശിച്ചുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമാകുമെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

ശൌചാലയ നിർമ്മാണം കുടിവെള്ള വിതരണം എന്നിവ മാത്രമെ അനുവദിക്കാവൂ എന്ന് ഉന്നതാധികാര സമിതി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു ശബരിമല പമ്പ ് നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ വനഭൂമിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ ഉത്തരവിടണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ഉന്നതാധികാര സമിതി സെക്രട്ടറി അമർനാഥ് ഷെട്ടിയാണ് റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത്

പുനഃപരിശോധനാ ഹർജികളിൽ അന്തിമ തീരുമാനമുണ്ടാകും വരെ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിക്കണമെന്ന പൊതുതാത്പര്യ ഹർജി കോടതി തള്ളി സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നത് ഗവൺമെന്റിന്റെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു

ശ്രീധരൻപിള്ള ശബരിമലയിലെ നിയന്ത്രണങ്ങൾ പിൻപ്പ്ലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചിയിൽ മാധ്യമ പ്ര്വർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ബിജെപി തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായും ശ്രീ

തീപിടിത്തം സംബന്ധിച്ച് സമഗ്രെ അന്വേഷണം നടത്തുമെന്ന് വ്യവസായമന്ത്രി ഇ

വ്യവസായകേന്ദ്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വകുപ്പ് പരിശോധിച്ച് നടപടി കൈക്കൊള്ളും

വ്യവസായരംഗത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ വ്യവസായികളും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ജാഗ്രത പാലിക്കുകയും വേണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

അപകടത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഗ്നിശമന സേന വിഭാഗം മേധാവി എ

നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ച അഗ്നിശമന തീ സേനയിലെ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു

കമ്പനി സുരക്ഷ കാര്യത്തിൽ ഗുരുതരമായ പിഴവ് വരുത്തിയതായി ഇന്ന് രാവിലെ സ്ഥലം സന്ദർശിച്ച ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ വെളിപ്പെടുത്തി

പ്രാഥമിക അഗ്നി ശമന ഉപകരണങ്ങൾ വേണ്ടത്ര സജ്ജീകരിച്ചിരുന്നില്ലെന്നും സൂചന

സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇന്ന് മുതൽ ഗ്രീൻ പ്രോട്ടോക്കോൾ നിലവിൽവന്നു ഹരിതകേരളം മിഷന്റെയും ശുചിത്വമിഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഇതോ ടൊപ്പം അംഗൻവാടി ജീവനക്കാർക്ക് മതിയായ പരിശീലനം നൽകുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു

മന്ത്രി എ

ഇതോടെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ മൂന്നെണ്ണവും വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി കായിക ലേഖകൻ അൻസാർ എസ്

ഇന്ത്യൻ ബൌളർമാരുടെ മികവാണ് തകർപ്പൻ വിജയം സമ്മാനിച്ചതെന്ന് വിരാട് കോഹ്ലി പറഞ്ഞു

കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവൃത്തിന്റെ ഭാഗമായി എറണാകുള ത്തപ്പൻ ഗ്രൌണ്ടിൽ റീജ്യണിൽ ഔട്ട്റീച്ച് ബ്യൂറോയാണ് പ്രദർശനം ഒരുക്കുന്നത്